കോഴിക്കോട്ട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് മലപ്പുറം കവളപ്പാറയിൽ നാലു മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി

സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു

ഇന്ന് വടക്കൻ കേരള ത്തിലും നാളെ തെക്കൻ കേരളത്തിലുമാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് ഇന്ന് അതിതീവ്ര മഴ കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ശക്തമോ അതിശക്തമോ ആയ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടായിരിക്കും

അതിനിടെ ഉരുൾപൊട്ടലുണ്ടായ മലപ്പുറം കവളപ്പാറയിൽ നിന്ന് നാലു മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി

കോട്ടയത്ത് ഒരാളെ കണ്ടെത്താനുണ്ട്

തൃശൂരിൽ എട്ടും ഇടുക്കിയിൽ അഞ്ചും ആലപ്പുഴ നാലും കോട്ടയം കാസർകോട് ജില്ലകളിൽ രണ്ടുപേർ വീതവും പാലക്കാട്ട് ഒരാളും മരിച്ചതായാണ് കണക്ക്

വയനാട് മേപ്പാടി പുത്തുമല ദുരന്ത സ്ഥലത്ത് മണ്ണിനടിയിൽപ്പെട്ടവർ ക്കായി തെരച്ചലിന് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളെത്തി

ആർ എഫിന് പുറമെ അഗ്നിരക്ഷാ സേനയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും തെരച്ചിലിൽ വ്യാപൃതരാണ് അറുന്നോറോളം പേരാണ് ചൊവ്വാഴ്ച പകൽ മുഴുവനും ദുരന്ത സ്ഥലത്ത് തെരച്ചിലിനുണ്ടായിരുന്നത് മഴയൊഴിഞ്ഞു നിന്നെങ്കിലും വൻ മരങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തേക്ക് ഒഴുകി വന്നടിഞ്ഞതിനാൽ തെരച്ചിൽ ദുഷ്കരമായിരുന്നു മഴക്കെടുതിയിൽ തൃശൂർ ജില്ലയിൽ രണ്ടുപേർ മരിച്ചു പാടശേഖര ത്തിലെ വെള്ളക്കെട്ടിൽ വീണ് വെങ്കടങ്ങ് കണ്ണോത്ത് പുല്ലറോഡിലെ പുളിക്കൽ റസിയ പുതുക്കാട് കോടാലിയിൽ കെട്ടിടത്തിന്റെ സൺഷേഡ് തകർന്നുവീണ് കുറ്റിക്കാട് ഒറ്റക്കൊമ്പന്റെ വീട്ടിൽ സത്യൻ എന്നിവരാണ് മരിച്ചത് ഇതോടെ ജില്ല യിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി

തിരൂർ തിരുനാവായ സൌത്ത് പല്ലാറിലെ വയലിൽ വെള്ളക്കെട്ടിൽ വീണ മകനെയും ഭാര്യയുടെ സഹോദരന്റെ മകനെയും രക്ഷപ്പെടുത്തുന്നതിനിടെ യുവാവ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു

ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പു റം കോഴിക്കോട് വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവ ധി പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ ദുരിതാശ്ചാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് സംസ്ഥാനം നേരിട്ട ദുരന്തം അതിജീവിക്കാൻ ഒന്നിച്ച് നിൽക്കാമെന്നും ഗവൺമെന്റ് ഒപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയ നാട് പുത്തുമലയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ നിന്നും രക്ഷപ്പെട്ട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധി തരെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൂരന്തത്തിൽ നിന്ന് അതി ജീവനത്തിനായി ഗവൺ മെന്റിന് വിവിധ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും രക്ഷാപ്ര വർത്തനങ്ങൾക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാ ക്കി വീട് സ്ഥലം കൃഷി എന്നിവ നഷ്ടപ്പെട്ടവർക്കും പുനരധിപാസത്തിനും ഗവൺമെന്റ് പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുത്തുമല ദുരന്ത ത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു ദുരിതബാധിതർക്കായി ഒരുക്കിയ് ക്യാമ്പുകളുടെ നടത്തിപ്പിൽ ജാഗ്രത പുലർത്തണമെന്ന് വയനാട് കളക്ട്രേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യാഗസ്ഥരുടെയും യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു

ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് കരുത്ത് പകരുന്ന സമീപനം ക്യാമ്പ് പരിപാലിക്കുന്ന വരിൽ നിന്നും ഉണ്ടാവണമന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചുപോകുമ്പോ ഴേയ്ക്കും ദുരിതബാധിതരുടെ വീടുകൾ താമസയോഗ്യമാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു വീടുകളും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് ധനസഹായ വിതരണത്തിന് ക്രമീകരണം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

മഴക്കെടുതിയുണ്ടായ ആദ്യദിനം തന്നെ വിവിധ ജില്ലകളിൽ വകുപ്പ് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇത്രയും ജീവനുകൾ സംരക്ഷിക്കാൻ സഹായകരമായതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രളയത്തിനു പുറമെ പകർച്ചവ്യാധി ദുരന്തം കൂടി സംസ്ഥാനത്ത് ഉണ്ടാ കാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ

പകർച്ചവ്യാധികൾ തടയാൻ വേണ്ട മുൻകരുതലെടുക്കണം

ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇവർക്ക് ആശ്വാസം നൽകുന്നതിന് നടപടി സ്വീകരിച്ചുവരികയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രളയകെടുതിയിൽപ്പെട്ട കന്നുകാലികൾക്ക് കാലി ത്തീറ്റയും വൈക്കോലും ധാതുലവണ മിശ്രിതം തുടങ്ങിയവയും സൌജന്യമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു

യാതൊരു കാരണവശാലും ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി എ

പാലക്കാട് ജില്ലയിലെ പ്രളയദുരിത മേഖ ലകൾ സന്ദർശിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി

ജയരാജൻ ബന്ധപ്പെട്ട വർക്ക് നിർദ്ദേശം നൽകി മാലിന്യങ്ങൾ വേഗത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും പകർച്ചവ്യാധി സാധ്യത തടയണമെന്നും കണ്ണൂരിൽ ചേർന്ന അവലോകനയോഗ ത്തിൽ മന്ത്രി പറഞ്ഞു തൃശൂർ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏറാമാക്കൽ ബണ്ടിനോട് ചേർന്ന വളയം കെട്ട് പൊളിച്ചു നീക്കി പഞ്ചായത്തിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് മന്ത്രി വി

സുനിൽകുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി

സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം കണ്ടെത്തിയ കാരശ്ശേരി പഞ്ചായ ത്തിലെ തോട്ടക്കാട് പൈകാടൻ മലയിൽ മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി

വയനാട്ടിലെ ജനങ്ങളുടെ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കയച്ചികത്തിൽ മണ്ഡലം എംപിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു പാരിസ്ഥിതികമായി ദുർബലമായ വയനാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നറി യിപ്പ് നൽകുന്നതിന് സംവിധാനം സ്ഥാപിച്ചാൽ ഒട്ടേറെ ജീവനുകൾ രക്ഷിക്കാനാ വുമെന്ന് അദ്ദേഹം അറിയിച്ചു

നിൽക്കുന്ന ഈരാറ്റുപേട്ട പൂഞ്ഞാർ തീക്കോയി മേഖലകളിൽ ശക്തമായി മഴ തുടരുകയാണ് ഇവിടങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു

മുട്ടുകാട് മലനിരകൾക്ക് കുറുകെയുള്ള റോഡ് നൂറ് മിറ്ററോളം നീളത്തിൽ നാല് അടിവരെ താഴ്ച്ചയിലാണ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്

കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി

അറിയിച്ചു ഇന്നത്തെ മുംബൈ ഛത്രപതി ശിവജി നാഗർകോവിൽ എക്സ്പ്രസ്സ് ട്രെയിൻ പനവേൽ രോഹ മഡ്ഗാവ് മംഗലുരു ഷൊർണ്ണൂർ പാലക്കാട് വഴി തിരിച്ചുവിട്ടു

സ്ഥാതന്ത്ര്യദിന തലേന്നാളായ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും രാത്രി ഏഴിന് രാഷ്ട്രപതിയുടെ പ്രസംഗം ആകാശവാണിയിലും ദൂരദർശനിലും കേൾക്കാം

മലയാള പരിഭാഷ രാത്രി എട്ടിന് കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും

സിനെ നേരിടും പോർട്ട് ഓഫ് സ്പെയിനിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം ആദ്യ കളി മഴ മുടക്കിയപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു ജയം

ഫൈനലിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ തോല്പിച്ചത്

ഏഷ്യൻ അത്ലറ്റിക്സ് അസോസിയേഷൻ കമ്മീഷൻ അംഗമായി ഒളിംപ്യൻ പി ടി ഉഷയെ നിയമിച്ചു

ടുന്ന കെവിൻ വധക്കേസിൽ കോട്ടയം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും

കോട്ടയം നട്ടാശേരി എസ്എച്ച് മൌണ്ട് പിലാത്തറയിൽ കെവിൻ പി ജോസഫിനെ കൊല്ലം തെന്മല സ്വദേശി നീനു ചാക്കോയെ വിവാഹം കഴിച്ചതിന്റെ പ്രതികാരമായി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്